ഇന്ത്യയെ മാറ്റാനും രക്ഷി ക്കാനുമുള്ള പോരാട്ടം ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു കൊണ്ടുപോകുമെന്നും യെച്ചൂരി പറഞ്ഞു

കുന്തിപ്പുഴ സ്വദേശി സഫീർ ആണ് കൊല്ലപ്പെട്ടത് മണ്ണാർക്കാട് നഗരസഭാ കൌൺസലർ സിറാജുദ്ദീന്റെ മകനാണ് ഇന്നലെ രാത്രി ഒമ്പ തുമണിയോടെ കോടതിപ്പടിയിലെ തുണിക്കടയിൽ വെച്ചാണ് സംഭവം കടയിലെത്തിയ മൂന്നംഗ സംഘം കുത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പൊലീസ് പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട്ട് നിയോജകമണ്ഡ ലത്തിൽ മുസ്ലിം ലീഗ് ഇന്ന് പകൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഷുഹൈബ് വധത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാ പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കപിൽചസിബൽ ആവശ്യപ്പെട്ടു സിപി ഐഎമ്മും ആർഎസ്എസും ബിജെപിയും അക്രമമാർഗത്തി ലൂടെ സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കി യിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിതന്നെ കൊലപാതകങ്ങൾ നട ത്തുന്നത് അപലപനീയമാണ് സ്വന്തം മണ്ഡലത്തിൽ മനുഷ്യ മനസ്റ്റാക്ഷിയെ നടുക്കുംവിധം കൊലപാതകം നടന്നിട്ടും മുഖ്യ മന്ത്രി പുലർത്തിയ നിസ്സംഗത അത്ഭുതപ്പെടുത്തുന്നതാ ണെന്നും കപിൽ സിബൽ അഭിപ്രായപ്പെട്ടു ഷുഹൈബ് വധത്തിൽ സിബിഐ അന്വേഷണം ആവ ശൃപ്പെട്ട് സെക്രട്ടറിയറ്റിനു മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഡീൻ കുര്യാക്കോസിനെയും സിആർ മഹേഷിനെയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കപിൽ സിബൽ

അതിനിടെ സിബിഐ അന്വേ ഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ നടത്തുന്ന നിരാഹാര സമരം എട്ടാം ദിവസത്തേക്ക് കടന്നു കണ്ണൂരിൽ ഷുഹൈബിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുംവരെ കെ സുധാകരൻ നിരാഹാര സമരം തുടരുമെന്ന് കെപിസിസി പ്രസിഡണ്ട് എംഎം ഹസൻ ആലപ്പുഴയിൽ അറിയിച്ചു ഷുഹൈബിന്റെയും മധുവിന്റെയും നിഷ്ഠുര കൊലപാ തകങ്ങൾ ഇടതു ഗവൺമെന്റിന്റെ ദയനീയ പരാജയം വിളി ച്ചോതുന്നതാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു പൊലീസ് നിഷ്ക്രിയമായതാണ് സദാചാര ഗുണ്ടകൾ തല പൊക്കാൻ കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി യുഡി എഫ് ഗവൺമെന്റ് ആദിവാസികൾക്കായി നടപ്പാക്കിയ സൌജന്യ റേഷ്യൻ പദ്ധതി എൽഡിഎഫ് ഗവൺമെന്റ് നിർത്ത ലാക്കിയത് അവരെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു കോഴിക്കോട് കൊടിയത്തൂരിൽ കോൺഗ്രസ് മണ്ഡലം സമ്മേളനത്തിലെ സമാപനയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഷുഹൈബിന്റെ കൊലപാതക കേസ് സത്യസന്ധമായി അന്വേഷിക്കണമെന്ന് സുരേഷ് ഗോപി എം

ആവശ്യപ്പെ ട്ടു ഷുഹൈബിന്റെ വീട് അദ്ദേഹം സന്ദർശിച്ചു നെടുംപൊ യിലിനടുത്ത് കൊമ്മേരിയിൽ കൊല്ലപ്പെട്ട എ

പി പ്രവർത്തകൻ ശ്യാമപ്രസാദിന്റെ വീടും സുരേഷ് ഗോപി സന്ദർശിച്ചു അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിന്റെ സഹോദരിക്ക് ഗവൺമെന്റ് ജോലി നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി എ

ബാലൻ പറഞ്ഞു മധുവിന്റെ മാതാവിന് ധനസ ഹായം കൈമാറാൻ അഗളിയിൽ എത്തിയതായിരുന്നു മന്ത്രി

ഇത് സംബ ന്ധിച്ച വിശദാംശങ്ങൾ അടുത്ത ദിവസം പുറത്തുവിടുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു മധുവിന്റെ കൊലപാ തകം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശൃപ്പെട്ട് നാളെ സെക്രട്ടറിയറ്റിനു മുന്നിൽ ഒരു ദിവസത്തെ സതൃഗ്രഹം നട ത്തുമെന്നും കുമ്മനം പറഞ്ഞു ബോളിവുഡ് താരം ശ്രീദേവിയുടെ ഭൌതികദേഹം ഇന്ന് മുംബൈയിലെത്തിക്കും

ശ്രീദേവിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാ യതായി യുഎഇ അധികൃതർ അറിയിച്ചു

ശനിയാഴ്ച അർധരാത്രിയോടെയാണ് ദുബായിൽ താമസിക്കുകയായിരുന്ന ഹോട്ടൽ കുളിമുറിയിൽ ശ്രീദേവി കുഴഞ്ഞുവീണത് ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷി ക്കാനായില്ല കശ്മീർ താഴ് വരയിൽ ഭീകരർ നടത്തിയ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ രണ്ട് പൊലീസുകാർ വീരമൃത്യു വരിച്ചു ചരാരെ ശെരീഫിനു സമീപത്തെ പൊലീസ് പോസ്റ്റിനു നേരെയും ഒരു ഹുരിയത്ത് നേതാവിന്റെ വീടിനു സമീ പത്തുമുണ്ടായ വെടിവെപ്പുകളിലാണ് പൊലീസുകാർ മരി ച്ചത് കോഴിക്കോട്ട് നടക്കുന്ന ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ സെമിയിൽ പ്രവേശിച്ചു ഹരിയാനയെയാണ് ഇരു വിഭാഗ ത്തിലും കേരളം തോൽപിച്ചത് സെമിയിൽ തമിഴ്നാടാണ് കേരളത്തിന്റെ എതിരാളി

മറ്റു മത്സരങ്ങളിൽ ഇന്നലെ പുരുഷവിഭാഗത്തിൽ തമി ഴ്നാടും സർവീസസും വനിതാ വിഭാഗത്തിൽ മഹാരാഷ്ട്രയും നിലവിൽ ചാമ്പ്യൻമാരായ റെയിൽവേസും സെമിയിൽ പ്രവേ ശിച്ചു തമിഴ്നാട് ആന്ധ്രാപ്രദേശിനെയും സർവീസസ് പഞ്ചാ ബിനെയുമാണ് പരാജയപ്പെടുത്തിയത് വനിതാ വിഭാഗ ത്തിൽ റെയിൽവേസ് കർണാടകയെയും മഹാരാഷ്ട്ര പശ്ചി മബംഗാളിനെയും തോൽപിച്ചു ഐഎസ്എൽ ഫുട്ബാളിൽ സെമിഫൈനൽ പ്രതീക്ഷ യുമായിറങ്ങിയ ജംഷഡ്പൂർ എഫ്സിക്ക് അപ്രതീക്ഷിത തോൽവി ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ബംഗളൂരു എഫ്സി എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ജംഷഡ്പൂരിനെ തോൽപിച്ചത്

പൂനയിൽ നടന്ന മത്സരത്തിൽ പൂനെ സിറ്റി എഫ്സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തകർത്ത് എഫ്സി ഗോവ സെമി ഫൈനൽ സാധ്യത സജീവമാക്കി ഇന്ത്യയുടെ സമീർ വർമ സ്വിസ് ഓപൺ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കി സ്വിറ്റ്സർലന്റിലെ ബാസിലിൽ നടന്ന പുരുഷ സിംഗിൾസ് ഫൈനലിലാണ് സമീർ ലോക രണ്ടാം നമ്പർ താരം യാൻ ജോർഗൻസനെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലും ചലച്ചിത്ര അക്കാ ദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോ ത്സവം കണ്ണൂരിൽ തുടങ്ങി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ടൌൺ സ്കയറിലും ശിക്ഷക് സദ നിലും രാവിലെ മുതൽ പ്രദർശനം ഉണ്ടാകും വൈകീട്ട് ഓപൺ ഫോറവും നടക്കും മതവിദ്വേഷം വളർത്തുന്ന പാഠഭാഗങ്ങൾ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ പിടിയിലായ പീസ് സ്കൂൾ ചെയർമാൻ എംഎം അക്ബറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിച്ച ശേഷം അസിസ്റ്റന്റ് കമ്മീ ഷണർ കെ ലാൽജിയുടെ നേതൃത്വത്തിലാണ് അക്ബറിനെ അറസ്റ്റ് ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും അക്ബറിനെതിരെ സംസ്ഥാന പൊലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു കേരള വാട്ടർ അതോറിറ്റി ഇന്നവേഷൻ സോണിന്റെ ആഭി മുഖ്യത്തിൽ രൂപകൽപന ചെയ്ത മാൻഹോൾ ശുചിയാ ക്കുന്ന യന്ത്ര മനുഷ്യന്റെ അനാച്ഛാദനവും പ്രവർത്തനോ ദ്ഘാടനവും ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജ യൻ തിരുവനന്തപുരം വെള്ളയമ്പലത്ത് നിർവഹിക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായി തിരുവനന്ത പുരം നഗരത്തിലെ ആൾനൂഴികൾ ശുചിയാക്കുന്നതിന് ബൻഡിക്കൂട്ട് എന്നു പേരിട്ട ഈ യന്ത്രമനുഷ്യനെ പ്രയോ ജനപ്പെടുത്തും സിപിഐ നിഴലിനോട് യുദ്ധം ചെയ്യാറില്ലെന്നും പറ യേണ്ടതെല്ലാം തുറന്നു പറയുന്ന പാർട്ടിയാണെന്നും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു മുഹമ്മ കയർ ഫാക്ടറി തൊഴിലാളി യൂനിയൻ എഐടിയുസി പുതു തായി പണിത ഓഫീസായ കെ

വൈദ്യർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നടത്തിയ ശേഷം മാരാരിക്കുളത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴി മതിക്കെതിരെ എൽഡിഎഫ് നടത്തിയ സമരത്തിന്റെ ഉൽപ ന്നമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അഴിമതി എല്ലാം അഴി മതിയാണ് അതിൽ വീട്ടുവീഴ്ചയില്ലെന്നും കാനം പറഞ്ഞു ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നയിക്കുന്ന ഭാരത് യാത്രയ്ക്ക് ഐഎംഎ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ഐ എം എ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ഡോ ഹാരിഷ് ഗ്രോവർ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ മാർത്താണ്ഡപിള്ള തുടങ്ങിയവർ സംസാരിച്ചു പത്തനംതിട്ട ജില്ലയിലെ നെൽ കൽഷകർ സഹായിക്കു ന്നതിനായി ജില്ലാ പഞ്ചായത്ത് രണ്ട് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു കർഷകന്റെ അക്കൌണ്ടിൽ നേരിട്ട് പണം നൽകുന്നതാണ് പദ്ധതി ഇടുക്കിയിലെ ഇടവെട്ടി പ്രഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മാതൃകാപദ്ധതികൾ കണ്ടു മനസ്സിലാക്കുന്നതിനായി മണിപ്പൂരിൽ നിന്നും ജനപ്രതിനിധികളുടെ സംഘമെത്തി രണ്ടു ദിവസം അവർ പഞ്ചായത്തിൽ പര്യടനം നടത്തി പദ്ധതികൾ വിലയിരുത്തും കണ്ണൂരിൽ ഡങ്കിപ്പനി വ്യാപകമാവുന്നു വളപട്ടണം പഞ്ചാ യത്തിൽ ഇരുപതിലേറെ പേർക്ക് ഡങ്കിപ്പനി ബാധിച്ചതായി റിപ്പോർട്ടുണ്ട്

നാരായണക്കുറുപ്പിനെ തെരഞ്ഞെടുത്തു

കൊല്ലത്ത് ചേർന്ന സംസ്ഥാന പ്രതിനിധി സഭയാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്

സിയുടെ വജ്ജൂബിലി ആഘോഷങ്ങളുടെ സമാ പന സമ്മേളനം പട്ടം പി

ക്യാമ്പസിൽ ഇന്ന് വൈകീട്ട് നടക്കും ഗവർണർ പി

രാത്രി കാലങ്ങളിൽ വനാതിർത്തികളോടു ചേർന്ന റോഡുകളിലൂടെ യാത്രകളിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മലയാള ഭാഷാ പഠനത്തിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ രൂപംനൽകിയ പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി

നാല് മാസം ദൈർഘ്യം വരുന്ന കോഴ്സ് ഞായറാഴ്ചകളിലും പൊതു അവധിദിനങ്ങളിലുമാണ് നട ക്കുക